സമ്പർക്കംമൂലം രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന

ശിവശങ്കറിനെ സസ്പെന്റ് ചെയ്തു

വാർത്തകൾ വിശദമായി ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക സമിതിയുടെ ഈ വർഷത്തെ ഉന്നതതല യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തും നോർവെ പ്രധാനമന്ത്രി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എന്നിവർക്കൊപ്പം വീഡിയോ കോൺഫറൻസ് വഴിയാണ് പ്രധാനമന്ത്രി സംസാരിക്കുക

രേര സംസ്ഥാനത്ത് ശ്രദ്ധയിൽപെടാതെ കോവിഡ് രോഗവ്യാപനം നടക്കുന്ന ഇടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രോഗികളെ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും സമൂഹത്തിൽ രോഗികൾ ഉണ്ട് എന്ന് വിചാരിച്ചു തന്നെ ആളുകൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കമ്പോളങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ആശുപത്രികൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് രോഗവ്യാപനം നടക്കുന്നുവെന്നാണ് തിരുവനന്തപുരത്തെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രെ സംസ്ഥാനത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം പതിനായിരം കടന്നു

സമ്പർക്കംമൂലം രോഗം ബാധിക്കുന്നവരുടെ എണ്ണം ആശങ്കയുയർത്തി അതിവേഗം വർധിക്കുകയാണ്

രുമ തിരുവനന്തപുരത്താണ് ഇന്നലെയും ഏറ്റവും കൂടുതൽ രോഗബാധിതർ

സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം വർധിക്കുന്ന തിരുവനന്തപുരത്ത് ഗുരുതരമായ സ്ഥിതി വിശേഷമാണ് നിലനിൽക്കുന്നത്

ദേദ എറണാകുളം ജില്ലയിൽ സമ്പർക്കം മൂലം കോവിഡ് വ്യാപനം വർദ്ധിച്ചുവരികയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ എൻ സി ജയചന്ദ്രൻ

രുമ മലപ്പുറം ജില്ലയിൽ രോഗവ്യാപന സാധ്യത കൂടുന്ന സാഹചര്യമാണുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പൊന്നാനി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളതെന്നും അദ്ദേഹം അറിയിച്ചു രുമ കാസർകോട് ജില്ലയിൽ ഇന്നു മുതൽ പൊതുഗതാഗതത്തിന് നിയന്ത്രണമേർപ്പെടുത്തിയതായി ജില്ലാകളക്ടർ ഡോ

എന്നാൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും കലക്ടർ പറഞ്ഞു ദേദ തൃശൂർ മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം മരിച്ച കൊണ്ടാഴി സ്വദേശിനിയുടെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ് മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഫലം നെഗറ്റീവാണെങ്കിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംസ്കരിക്കാൻ മെഡിക്കൽ ബോർഡ് നിർദേശം നൽകി രേര തൃശൂർ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര ജില്ലകളിൽ നിന്നും വള്ളങ്ങളിലും ബോട്ടുകളിലും കരമാർഗ്ഗവും എത്തിച്ചേർന്ന് അനധികൃതമായി മത്സ്യ കച്ചവടമോ മത്സ്യബന്ധനമോ നടത്തുന്നത് കർശനമായി നിരോധിച്ച് ജില്ലാ കലക്ടർ എസ് ഉത്തരവിറക്കി ഷാനവാസ് നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും രാത്രികാല പട്രോളിംഗ് കർശനമാക്കുമെന്നും കലക്ടർ പറഞ്ഞു രുമ കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പൂർണമായും കണ്ടെയിൻമെന്റ് സോണാക്കി റെഡ് കളർ കോഡഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നിർവ്വചനത്തിൽപ്പെടുത്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി

രുമ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് കേസുകൾ വർധിക്കുന്ന സാഹചര്യത്തിൽ പ്രാദേശികതലത്തിൽ ഫസ്റ്റ്ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ഒരുക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു

രുമ രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷനർമാർക്കെല്ലാം കോവിഡ് ടെസ്റ്റിന് നിർദേശിക്കാമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് കോവിഡ് രോഗ പരിശോധന വർധിപ്പിക്കുന്നതിന് കേന്ദ്രം കൈക്കൊണ്ട നടപടികളുടെ ഭാഗമായാണിത്

റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സർവീസിന് നിരക്കാത്ത പ്രവർത്തനം അഖിലേന്ത്യാ സർവീസ് ചട്ടലംഘനം പെരുമാറ്റചട്ട ലംഘനം എന്നിവ ശിവശങ്കറിൽ നിന്നുണ്ടായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശിവശങ്കറിനെതിരെ വകുപ്പുതല അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു രാര രക്ഷിക്കാനുള്ള എല്ലാമാർഗവുമടഞ്ഞപ്പോഴാണ് ശിവശങ്കരനെ സസ്പെൻഡ് ചെയ്യാൻ തയ്യാറായതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു അന്വേഷണം തന്നിലേക്ക് നീളുന്നു എന്ന് കണ്ടപ്പോൾ ശിവശങ്കരനെ സസ്പെന്റ് ചെയ്ത് രക്ഷപ്പടാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു സ്വന്തം ഓഫീസ് കള്ളക്കടത്തുകാരുടെ താവളമാക്കാൻ അനുമതി നൽകിയ മുഖ്യമന്തിയുടെ രാജിയിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ലന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു രുമ സംസ്ഥാനത്ത് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അവസാന ഘട്ടത്തിൽ എത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തീകരിച്ച് കൊച്ചിയിൽ നിന്നും മംഗലാപുരത്തേക്ക് ഗെയിൽ പൈപ്പിലൂടെ ഗ്യാസ് എത്തിക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു രുമ കാർഷിക മേഖലയിലെ സ്വയംസഹായ ഗ്രൂപ്പുകളെ ഒരു വ്യക്തിയെന്ന നിലയിൽ പരിഗണിച്ച് സഹകരണ സംഘങ്ങൾ വായ്പ നൽകുമെന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പാലക്കാട് കണ്ണമ്പ്രയിൽ ആരംഭിക്കുന്ന ആധുനിക നെല്ല് സംഭരണ സംസ്കരണ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രുമ കുട്ടനാടിനെയും സമീപമേഖലകളെയും വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് തോട്ടപ്പള്ളിയിൽനിന്ന് മണ്ണു നീക്കുന്നതിനു പിന്നിലുള്ളതെന്ന് മന്ത്രി ഇ

നാടിന്റെയും ജനങ്ങളുടെയും നന്മയ്ക്കായി നടത്തുന്ന മണൽനീക്കം തടയാൻ നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു

വിദ്യാർത്ഥികൾക്ക് അക്ഷയ കേന്ദ്രം വഴി അപേക്ഷിക്കാം രുമ ലോക് താന്ത്രിക് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും എം വി ശ്രേയാംസ് കുമാറിനെ നീക്കിയ കേന്ദ്ര കമ്മറ്റിയുടെ നടപടി ഓൺലൈൻ വഴി നടന്ന പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ പോഷകസംഘടനാ ഭാരവാഹികൾ എന്നിവരുടെ യോഗം തള്ളി യോഗം എം വി ശ്രേയാംസ് കുമാറിന് പൂർണപിന്തുണ പ്രഖ്യാപിച്ചു രുര കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ആറു ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർകോട് എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട്

സി കേരളലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ദേശീയ തല എൻ

റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകൾ മാറ്റിവച്ചു